പെട്ടെന്നുള്ള മുത്തലാഖ് മൂന്നുവർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കുന്ന ഓർഡിനൻസിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം

അഫ്ഗാനിസ്ഥാനില്ലിസ്മാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലീസ് ഏഴു മണിക്കൂറോളം ചോദൃഹ ചെയ്തു ചോദൃം ചെയ്യൽ നാളെ തുടരും

പാകിസ്ഥാൻ മുൻപ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ശിക്ഷാവിധി ഇസ്താമാബാദ് ഹൈക്കോടതി റദ്ദാക്കി

ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ പാക് പോരാട്ടത്തിൽ പാകിസ്ഥാന് മോശം തുടക്കം

കൂടുതൽ വിവരങ്ങളുമായി വിനോദ്കുമാർ വോയിസ് തലാഖിന് ഇരയാവുന്ന സ്ത്രീയോ അവരുടെ ബന്ധുക്കളോ പരാതി നൽകിയാൽ മാത്രമേ മുത്തലാഖ് കുറ്റക്രമായി കണക്കാക്കൂ എന്ന് കേന്ദ്രനിയമമന്ത്രി രവിശങ്കർ ഫ്രസാദ് പറഞ്ഞു മജിസ്ട്രേറ്റ് ഭാരൃയുടെ മൊഴി കേട്ടശേഷം ഭർത്താവിന് ജാമൃം അനുവദിക്കാവുന്നതാണ് കുട്ടികൾ ഭാര്യയുടെ സംര്ക്ഷണത്തിലായിരിക്കും

കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വിഷയത്തെ കൂടുതൽ വഷളാക്കുന്നതെന്നും നിയമമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുസ്തിം സ്ത്രീകൾക്ക് അന്തസ്സോടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസരമാണ് ഗവൺമെന്റ് നടപടിയിലൂടെ ഉ ായിരിക്കുന്നതെന്നും ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിവര സാങ്കേതിക നിയമ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദാണ് ഇക്കാര്യം അറിയിച്ചത്

ഒഡീഷയിലെ തൽചാർ വ്ളനിർമാണ പദ്ധതിക്ക് ആയരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരി നിക്ഷേപത്തിനും ഇതോടൊപ്പം തീരുമാനമായി

വലിപ്പത്തിലും സൌകരൃത്തിലും ഇത് ലോകത്തെ മികച്ച കേന്ദ്രമായിരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങൾക്കും പ്രദർശനങ്ങൾക്കും കേന്ദ്രം വേദിയാകും

ന്യൂഡൽഹിയിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി പിന്തുണ അറിയിച്ചത് സമാധാന ശ്രമങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഐക്യവും സമാധാനവും ഉറപ്പു വരുത്തുമെന്നും രാജ്യത്തെ ഒരു ജനാധിപത്യ സാമ്പത്തിക ശക്തിയായി വളർത്തുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദ ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തി തീവ്രവാദത്തെ പരാജയ്പ്പെടുത്തി സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ നൽകുന്ന സഹായ്ങ്ങ്ളെ അഫ്ഗാൻ പ്രസിഡന്റ് എടുത്തു പറഞ്ഞു ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് അഷ്റഫ് ഘാനി ന്യൂഡൽഹിയിലെത്തിയത്

നാല് ദശലക്ഷം പേർ പ്രതിവർഷം ജോലി ചെയ്യുന്ന രാജ്യത്തെ ര ാമത്തെ ഏറ്റവും വലിയ വ്യവസായ രംഗമാണ് നിർമ്മാണ മേഖലയെന്ന് എൻ ബി സി സി യുടെ സി എം ഡി അനൂപ് കുമാർ പറഞ്ഞു

ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന യുവജനങ്ങളെ കൂടുതൽ മികവുറ്റവരാക്കാൻ പരിശീലന പരിപാടികൾക്ക് കഴിയുമെന്നും സി എം ഡി പറഞ്ഞു

റുമേനിയൻ സന്ദർശനത്തിന്റെ ര ാം ദിവസം റുമേനിയൻ സെനറ്റ് പ്രസിഡന്റ് കലീൻ പൊപെസ്ക് കരിചാനുമായി പ്രതിനിധി തല ചർച്ച നടത്തിയ ഉപരാഷ്ട്രപതി എം

യൂറോപ്യൻ പര്യടനത്തിന്റെ മൂന്നാം പാദത്തിൽ റുമാനിയൻ തലസ്ഥാന നഗരിയിലെത്തിയ അദ്ദേഹം റുമാനിയൻ ചേംബർ പ്രസിഡന്റ് നിക്കോളെ ലിവി ഡ്രാഗ്നയുമായും കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും റുമാനിയയും ചരിത്രപരമായ സൌഹൃദം പങ്കിടുന്ന രാജ്യങ്ങളാണെന്ന് ചർച്ചകൾക്ക് ശേഷം ഉപരാഷ്ട്രപതി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞു ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇരുരാജ്യങ്ങളും ഐകൃരാഷ്ട്രട സംഘടന പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ കൂട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു

എറണാകുളം തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് എസ്

സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ ചോദൃം ചെയ്യലിന് ശേഷം പുറത്ത് വന്ന ബിഷപ്പിനെ എ ഐ വൈ എഫ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചു അതിനിടെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ സമരപന്തലിൽ നിരാഹാരത്തിലായിരുന്ന പരാതിക്കാരായ കന്യാസ്ത്രീയുടെ സഹോദരിയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി

നവാസ് ഷെരീഫിനൊപ്പം മകൾ മറിയം നവാസ് മകളുടെ ഭർത്താവ് മുഹമ്മദ് സഫ്ദർ എന്നിവരുടെ ശിക്ഷാവിധിയും കോടതി റദ്ദാക്കിയിട്ടു ് അഴിമതിക്കേസിലാണ് മുൻപ്രധാനമന്ത്രിയെ കോടതി ശിക്ഷിച്ചിരുന്നത് ല നിൽ ആഡംബര വസതി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്നാണ് കേസ് നവാസ് ഷെരീഫിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ ര ംഗ ബഞ്ച് വിധി റദ്ദാക്കുകയും മൂവരേയും വിട്ടയക്കാൻ ഉത്തരവിടുകയുമായിരുന്നു ഹർജികളിൽ അവസാന തീരുമാനമാകുന്നതുവരെ ഇപ്പോൾ നൽകിയ ഉത്തരവ് തുടരുമെന്നും കോടതി വ്യക്തമാക്കി

വിശദാംശങ്ങളുമായി വിനോദ്കുമാർ വോയിസ് അമേരിക്ക അനുകൂലമായി പ്രതികരിച്ചാൽ ഉത്തരകൊറിയ രാസായുധങ്ങൾ നശിപ്പിക്കാൻ തയാറാണെന്ന് അറിയിച്ചതായി ദക്ഷിണകൊറിയൻ പ്രസിഡന്റ് അറിയിച്ചു ഇരുനേതാക്കളും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം മൂൺ ജേ ഇൻ അറിയിച്ചതാണ് ഇക്കാര്യം ഒരു മിസൈൽ പരീക്ഷണകേന്ദ്രം പൂർണ്ണമായി അടച്ചു പൂട്ടാൻ തയാറാണെന്നും ഉത്തരകൊറിയ അറിയിച്ചിട്ടു ്

കൊറിയൻ യുദ്ധത്തിന് ശേഷം ഉത്തരകൊറിയൻ ഭരണാധികാരി നടത്തുന്ന ആദ്യ സന്ദർശനമായിരിക്കും ഇത് സമീപ ഭാവിയിൽ തന്നെ രാസായുധ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു

മൂന്ന് റൺസിനിടെ ഓപ്പണർമാർ പുറത്ത് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

എതിരില്ലാത്ത നാലു ഗോളുകൾക്കാണ് ഇന്ത്യൻ വിജയം

പാകിസ്ഥാനി ഗോളി അയേഷ ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് നേടിയ സെൽഫ് ഗോളും ചേർന്നാണ് ഇന്ത്യക്ക് മികച്ച വിജയം സമ്മാനിച്ചത് ഗ്രൂപ്പ് ബിയിൽ ആറ് പോയിന്റുമായി ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്